നിഷ്ക്രിയ ആസ്തി കൈകാരൃം ചെയ്യുന്നത് വേഗത്തിലാക്കാൻ കേന്ദ്രം സ്വതന്ത്ര ആസ്തി വിനിയോഗ കമ്പനികൾ രൂപീകരിക്കൂം

നിഷ്ക്രിയ ആസ്തികൾ കൈകാരൃം ചെയ്യുന്നതിനും അതുവഴി വായ്പാ ശേഷി വർദ്ധിപ്പിക്കുന്നതും രൂപീകൃരിച്ച സുനിൽ മേത്ത സമിതി സമർപ്പിച്ച ശുപാർശകൾ ന്യൂഡ്ടർഹിയിൽ മാധ്യപ്രവർത്തകരോട് വിശദീകരിക്കുക്യാ്യിരുന്നു അദ്ദേഹം ഇതിലേക്കായി സുശക്ത് എന്നു പദ്ധുതി സുനിൽമേത്ത കമ്മിറ്റി സമർപ്പിച്ചിട്ടുണ്ടെന്ന് ശ്രീ

പദ്ധതിയിലൂടെ അഞ്ച് ശുപാർശകൾ സമിതി മൂന്നോട്ടു വയ്ക്കുന്നു നിഷ്ക്രിയ ആസ്തികളിൽ നിന്നും അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വ്യവസായങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് തൊഴിൽ നഷ്ടം തടയാനും പദ്ധതി ലക്ഷ്യംവയ്ക്കുന്നു വായ്പാ ഭാരം ലഘൂകരിക്കുന്നതിനായി ആഭ്യന്തര ബാങ്കിംഗ് മേഖലയിൽ ദീർഘകാല മൂലധന സമാഹരണത്തിന് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു നിഷ്ക്രിയ ആസ്തികൾ സുതാര്യമാക്കാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടെന്നും ശ്രീ പിയൂഷ് ഗോയൽ പറഞ്ഞു

വിശദാംശങ്ങളുമായി രഞ്ജിത്

മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

അംഗപൂരിമിതർ ഉൾപ്പെടെയുള്ള മുഴുവൻ വോട്ടർമാരെയും തെരഞ്ഞെട്ടുപ്പ് പ്രികിയയിൽ പങ്കാളികളാക്കുകയാണ് പ്രധാന ലക്ഷ്യും ഇതിന്റെ ഭാഗമായി സിസ്റ്റമിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആന്റ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ പോർട്ടലിന്റെ ഉദ്ഘാടനം നടക്കും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അംഗപരിമിതരുടെ ക്ഷേമ്ത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളും കേന്ദ്ര സാമൂഹ്യക്ഷേമ വാർത്താവിതരണ മന്ത്രാലയ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇപ്പോൾ ഗവർണ്ണർ ഭരണത്തിലുള്ള സംസ്ഥാനത്തിന്റെ സൂരക്ഷാകാരൃങ്ങൾ വിലയിരുത്തുന്ന ആഭ്യന്തരമന്ത്രി അമർനാഥും സന്ദർശിക്കും

വോറയുമായി ഇരുവരും ചർച്ച നടത്തും

തീര സംരക്ഷണസേന മുംബൈയിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്

ടാരയെ മാരിടൈം അവാർഡിനായി തെരഞ്ഞെടുത്തത് കൂരിരുട്ടിൽ ബോട്ടിന്റെ സ്ഥാനം ലക്ഷ്യംവച്ച് കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും മിലൻ ശങ്കർ ടാരെയ്ക്ക് സാധിച്ചു ഈ മാസം അഞ്ചിന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ ടാരെയ്ക്ക് പുരസ്കാരം സമ്മാനിക്കും

ബി

ഇവർക്കെതിരെ കുറ്റകരമായ ഗുഢാലോചന വർഗ്ഗീയ കലാപം സൃഷ്ടിക്കൽ രാജ്യദ്രോഹം വധശ്രമം ഭവനഭേദനം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുളളത് ലഹളയ്ക്കിടയിൽ ഹരിയാന ധനകാരൃമന്ത്രി റോതക്കിന്റെ വസതിയും ഇവർ ആക്രമിച്ചിരുന്നു

നദ്കർണി അന്തരിച്ചു

അത്യന്തം ജ്യാഗ്രത്യോടെ രാഷ്ട്രസേവനം ചെയ്ത അദ്ദേഹം നാവികചരിത്രത്തിലും തൽപരനായിരുന്നെന്ന് പ്രധാനമന്ത്രി നേരന്ദ്രമോദി അ്നുശ്ശോചന സന്ദേശത്തിൽ പറഞ്ഞു കേന്ദ്ര രാജ്യരക്ഷാമന്ത്രി നിർമ്മല് സീതാരാമനും അഡ്മിറൽ നദ്കർണിയുടെ വിയോഗ്ത്തിൽ അനുശോചനം അറിയിച്ചു

അമേരിക്കക്കെതിരെ റഷ്യ പരാതി സമർപ്പിച്ചതായി റഷ്യൻ വ്യാപര പ്രതിനിധി സൂറിച്ചിൽ അറിയിച്ചു

ചൈന ഇന്ത്യ കാനഡ മെക്സിക്കോ നോർവെ തുടങ്ങിയ രാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ് നേരത്തെ പരാതിയുമായി രംഗത്തെത്തിയത്

ഇന്നലെ ന്യൂഡൽഹിയിൽ സംസാരിക്കവെ സിക്കുകാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ട ജലാലാബാദ് ഭീകരാക്രമണത്തെ അദ്ദേഹം അപലപിച്ചു ഇന്തൃയിലെയും അഫ്ഗാനിസ്ഫാനിലെയും ഭീകര പ്രവർത്തനങ്ങളുടെ പ്രഭവകേന്ദ്രം പാക്ടിസ്ഥാനാണെന്നു സൂചിപ്പിച്ച അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹം കാര്യക്ഷമമായി ഇടപെടാൻ സമയമായെന്നും വ്യക്തമാക്കി

കേന്ദ്ര മന്ത്രിമാരായ ജനറൽ വി

സിംഗ് എം

അക്ബർ വിജയ് സംപ്പ ശിരോമണി അകാലിദൾ എം പി എസ്

ധിൻഡ്സ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു

വടക്കൻ ആമസോണിൽ സസ്യ വൈവിധ്യത്തിന് പേരുകേട്ട ഉദ്യാനം കൊളംബിയിയുടെ തെക്കൻ പ്രവിശ്യയായ കാക്വറ്റാ ആന്റ് ഗുവിയാരെയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊളംബിയയിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന ഒൻപതാമത്തെ സ്ഥാനമാണിത്

മറ്റൊരു മൽസരത്തിൽ ബ്രസീൽ ഏകപക്ഷീയമായ രണ്ടു ഗോളുകൾക്ക് മെക്സിക്കോയെ പരാജയപ്പെടുത്തി കാർട്ടർ ഫൈനൽ മൽസരങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കും

വിംബിൾഡൻ ടെന്നീസ് സിംഗിൾസിൽ മത്സരിക്കുന്ന ഏക ഇന്ത്യൻ താരമാണ് യുകി ഭാംബ്രി എന്നാൽ ഡബിൾസിൽ ആറ് ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും

മൂന്ന് മത്സരങ്ങളുളള ആദ്യ പരമ്പര മാഞ്ചസ്റ്ററിൽ ഇന്ന് ആരംഭിക്കും

ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് ഏകദിന പരമ്പരകളിലും ഇന്ത്യ കളിക്കും

കഴിഞ്ഞ മാസത്തിൽ ട്രിബ്യൂണൽ ജലം വിതരണം ചെയ്തത് ന്യൂഡൽഹിയിൽ ചേർന്ന സി

എ യുടെ പ്രഥമയോഗം വിലയിരുത്തി

രാവിലെ തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം പാർട്ടി സംസ്ഥാന കോർ കമ്മറ്റി യോഗത്തിലും പാർലമെൻറ് മണ്ഡലങ്ങളുടെ ചുമതലയുള്ളവരുടെയും പ്രഭാരിമാരുടെയും സംയുക്ത യോഗത്തിലും സംബന്ധിക്കും